സംസ്ഥാനങ്ങൾ സന്ദർശിക്കും വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും

സിംഗ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു

അസമിലെ ധേമാജിയിൽ എണ്ണ പ്രകൃതി വാതക മേഖലകളിലെ സുപ്രധാന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും

വൈകിട്ട് പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ റെയിൽവേ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിയ്ക്കും കൃഷ്ണോവാപാറയിൽ നിന്നും ദക്ഷിണേശ്വറിലേക്കുള്ള ഇരട്ടിപ്പിച്ച ക്മുട്ടോ റെയിൽ പാതയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കൂം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ഉദ്ഘാടനം ചെയ്തു പാർട്ടി ദേശീയ അദ്ധ്യക്ഷൻ ജെ

ദേശീയ ഭാരവാഹികൾക്ക് പുറമെ ബി ജെ

യോഗത്തിന് മുന്നോടിയായി ബി

പുതിയ കാർഷിക നിയമത്തിനെതിരായ കർഷകരുടെ പ്രതിഷേധവും അസ്സം പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗത്തിലെ പ്രധാന വിഷയങ്ങളാണ്

മോൾഡോ ബി

ഒ യിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച ചർച്ച മണിക്കൂറുകൾ നീണ്ടു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലഫ്റ്റനന്റ് ജനറൽ പി

മേനോനും ചൈനയെ പ്രതിനിധീക്ക് മേജർ ജനറൽ ലീയു ലിനുമാണ് ചർച്ചയിൽ തടാകക്കരയിൽ നിന്നുള്ള ക്ക്ച്നീസ് സേനാ പിൻമാറ്റത്തിന്റെ തുടർ നടപടികളായിരുന്നു

ഇതുകൂടാതെ പ്രദേശത്തെ ഗോത്രവിഭാഗങ്ങൾക്ക് പുൽമേടുകൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി നൽകണമെന്നും ഇന്തൃ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ആർ അറിയിച്ചു

സംസ്ഥാനങ്ങളിലും ദിവസേനയുള്ള രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ് പഞ്ചാബ് ജമ്മു കശ്മീർ സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ട് ഈ പശ്ചാത്തലത്തിൽ ആർ

സി ആർ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു എല്ലാ നെഗറ്റീവ് റാപ്പിഡ് ടെസ്റ്റ് ഫലങ്ങളും ആർ

ആർ ടെസ്റ്റിനും വിധേയമാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്

നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചപ്പോഴും കേരളത്തിലെ കോവിഡ് മരണ നിരക്ക് കുറയ്ക്കാനായത് സമഗ്രമായ പ്രവർത്തന ഫലമായാണ്

സൂപ്പർ സ്പ്രെഡർ പ്രതിഭാസം രോഗവ്യാപനത്തെ എങ്ങനെ ബാധിക്കുമെന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു ഗവേഷണങ്ങൾ

രാജ്യത്തെമ്പാടുമുള്ള കൈത്തൊഴിൽ കരകൌശല വിദ്ഗധർ പങ്കെടുക്കുന്ന മേളയാണ് ഹൂണാർ ഹാത്ത് വിശദാംശങ്ങളുമായി അക്ഷയ് ഷാജി

രാജ്യത്തിന്റെ വിവിധഭാഗങ്ങളിൽ നിന്നുള്ള കരകൌശല ഉൽപന്നങ്ങൾ ഒരുകുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള അവസരമാണ് ഹുണാർ ഹത്തിലൂടെ ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ഇതിനുപുറമേ രാജ്യത്തിന്റെ വിവിധ പാരമ്പര്യ രുചികൾ പരിചയപ്പെടുത്തുന്ന വിഭാഗവും ഹുണാർ ഹത്തിന്റെ ഭാഗമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക സംഗീത പരിപാടികളും ഹുണാർ ഹത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്

ഓൺലൈൻ വിർചൽ പ്ലാറ്റ് ഫോമിലൂടെയും ഹുണാർ ഹാത്ത് സന്ദർശിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രിമുഖ്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

പര്യടനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിലെ പരിസ്ഥിതി പ്രാധാന്യമുള്ള വിവിധ സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കവരത്തിയിലെ ഔഷധസസൃ ഉദ്യാനം സന്ദർശിച്ച ശേഷം നിവാസികളില്ലാത്ത സുഹേലി ബംഗാരം ദ്വീപുകൾ സന്ദർശിക്കുകയും ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പ് സംഘടിപ്പിച്ച സമുദ്ര വന്യ ജീവി സംരക്ഷണ കൃാമ്പ് നിരീക്ഷിക്കുകയും ചെയ്തു

നാരായണസ്വാമിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സാഹചര്യം മങ്ങുന്നതായാണ് റിപ്പോർട്ട് ഒരു എം എൽ എ കൂടി പാർട്ടി വിട്ടേയ്ക്കുമെന്ന സൂചന പുറത്തുവന്നതോടുകൂടിയാണിത്

എൽ എ മാരാണ് രാജിവെച്ചത്

എ മാർക്ക് ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്

ഭാഷയുടെ വൈവിധ്യം ആഘോഷിക്കാനും സംരക്ഷിക്കാനും ഓർമ്മപ്പെടുത്തുന്നുവെന്നതാണ് മാതൃഭാഷാദിനത്തിന്റെ പ്രസക്തി നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനശിലയാണ് രാജ്യത്തെ ഭാഷാവൈവിധ്യമെന്ന് ഉപരാഷ്ട്രപതി എം

ലോക മാതൃഭാഷാദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വെബിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇന്ന് മുതൽ വിദേശികൾക്ക് പ്രവേശനം നൽകാനുള്ള തീരുമാനം വ്യോമയാന വകുപ്പ് റദ്ദാക്കുകയായിരുന്നു

വൈകിട്ട് അഞ്ച് മണിക്കുള്ള മത്സരത്തിൽ ബംഗ്ളൂരു എഫ്

നീണ്ട കാലത്തിനു ശേഷം നഗരത്തിലെത്തിയ മേളയെ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്ന ജനങ്ങളെയാണ് മേളയിലുടനീളം കാണാൻ സാധിച്ചത്